അസമിലെ ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ അന്തിമപട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും

ബി

ആരോഗൃ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പി വി സി ഫ്ളക്സുകൾ കേരളത്തിൽ നിരോധിച്ചു

അന്തിമപട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് സൌജന്യ നിയമസഹായം ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങളാണ് അസ്സം ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾക്ക് മുമ്പാകെ പരാതി സമർപ്പിക്കാൻ അവസരമുണ്ടാക്കും ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് അസ്റ്റം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ അറിയിച്ചു സമാധാനം നിലനിർത്താൻ ജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ബി ഐ മിന്നൽ പരിശോധന നടത്തി കേന്ദ്ര ഗവൺമെന്റ് സ്ഫാപനങ്ങളിലും പൊതുമേഖല സ്ഥാപനങ്ങളിലും വിജിലൻസുമായി സ്ഫ്കരിച്ചാണ് പരിശോധന നടത്തിയത് ഡൽഹി ജയ്പൂർ ഗുവാഹത്തി ശ്രീന്ഗൂർ ചെന്നൈ കൊൽക്കത്ത ഹൈദരാബാദ് ബംഗളൂരു മുംഒരു്പ് ഗോവ ഭോപാൽ നാഗ്പൂർ പട്ന റാഞ്ചി ഗാസിയാബാദ് ലക്നഇ ഉൾക്റാഡൂൺ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന റെയിൽവേ കുൽക്കൂരിഖനികൾ ആരോഗൃസംരക്ഷണകേന്ദ്രങ്ങൾ കസ്റ്റംസ് ഫുഡ് കോർപ്പറേഷ്ടൻ ഓഫ് ഇന്ത്യ എന്നീ വിഭാഗങ്ങളിലാണ് സംഘം പരിശോധന നടത്തിയത്

പത്ത് പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് നാല് വലിയ ബാങ്കുകളാക്കി മാറ്റുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു

ബാങ്ക് ഓഫ് ്ബറോഡ ഏറ്റവും വലിയ മൂന്നാമത്തെ ബാങ്കായി തുടരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക്

എന്നാൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്ത ഉത്പാദനത്തിൽ ചെറിയ തോതിലുള്ള ഇടിവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ

ബാങ്കിംഗ് ധനമേഖലയിൽ ഗവൺമെന്റ് മേൽനോട്ടം തുടരുമെന്നും നിക്ഷേപങ്ങൾ സമ്പദ്രംഗത്തിന്റെ വളർച്ച ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നതായി പ്രധാനമന്ത്രിയുടെ സാമ്പത്തികകാര്യ ഉപദേശക സമിതി ചെയർമാൻ ബിബേക് ധിബ്രോയ് വ്യക്തമാക്കി

ദ്രുത്ഗതിയിലുള്ള പ്രശ്നപരിഹാരത്തിനായി സ്റ്റർട്ടപ്പുകൾക്ക് പ്രത്യേക സമിതിയെ സമീപിക്കാം

തദ്ദേശസ്വയംഭരണ വകുപ്പ് ഇതുസംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു

ഗവൺമെന്റ് പരിപാടികൾ സ്വകാര്യ പരിപാടികൾ മതപരമായ ചടങ്ങുകൾ സിനിമ തെരഞ്ഞെടുപ്പ് പ്രചാരണം മറ്റു പരസ്യങ്ങൾ ഉൾപ്പെടെ യാതൊരു പ്രചാരണത്തിനും പി വി സി ഫ്ളക്സ് ഉപയോഗിക്കാനോ അച്ചടിക്കാനോ പാടില്ല

വി സി ഫ്ളക്സിന് പകരമായി തുണി പേപ്പർ പോളി എത്തലീൻ തുടങ്ങി പുനഃചംക്രമണം സാധ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് അച്ചടിക്കുന്ന ബാനറുകളോ പരസ്യബോർഡുകളോ മാത്രമേ പരസ്യപ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കാവൂ

ബോർഡുകളും ബാനറുകളും ഉപയോഗം അവസാനിക്കുന്ന തിയതിക്കുശേഷം പരമാവധി ഏഴുദിവസത്തിനുള്ളിൽ സ്ഥാപിച്ചുവർ തന്നെ നീക്കം ചെയ്യണം ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് പിഴയും അവ നീക്കം ചെയ്യാനുള്ള തുകയും ഈടാക്കും

ഉത്തരവ് ലംഘിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയ്ക ജസ്റ്റിസ് ഹൃഷികേശ് റോയിക്ക് സുപ്രീം കോടതി ജഡ്ജിയായി സ്മാന്റിക്കുയറ്റം നൽകാൻ ശുപാർശ ചെയ്തതിനെ തുടർന്നാണ് ഇത് സുപ്രീംക്ക്ടോട്ടത്തി കോളീജിയമാണ് ജസ്റ്റിസ് ഹൃഷികേശ് റോയി ഉൾപ്പെടെ നാലു പ്പേർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ ശുപാർശ ചെയ്തത്

ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഉപഗ്രഹത്തിന്റെ നാലാമത്തെ ഭ്രമണപഥം ഉയർത്തൽ ഇന്നലെ വൈകിട്ട് വിജയകരമായി പൂർത്തിയാക്കി

ഏറ്റവും അവസാനത്തെ ഭ്രമണപഥം ഉയർത്തൽ നാളെ വൈകുന്നേരം നടക്കും

മെയ് ഒന്നിനാണ് ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങിയത്

എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കോടതി നടപടി

നായകൻ വിരാട് കോഹ്ലിയും മായങ്ക് അഗർവാളും ചേർന്നാണ് ഇന്ത്യയെ തുടക്കത്തിലെ തകർച്ചയിൽ നിന്നും രക്ഷിച്ചത്

ഇന്ത്യയുടെ ആശങ്ക പാകിസ്ഥാൻ ഗവൺമെൻുമായി പങ്ക് വച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു

അടുത്ത മാസം രണ്ടാമത്ത് ആഴ്ചയോടെ നൃപേന്ദ്രമിശ്രയെ പദവിയിൽ നിന്ന് ഒഴിവാക്കു്ക്മുന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു പൊതുഭരണം നയരൂപീകരണം എന്നീ മേഖല്ലക്ളിൽ അദ്ദേഹം മികച്ച് സേവനമാണ് കാഴ്ചവച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ് മ്മുൻ ക്യാബിനറ്റ് സെക്രട്ടറി പ്രദീപ് കുമാർ സിൻഹയെ പ്രധാനമന്ത്രിയുടെ ഓഫീസില്ലെ പ്രത്യേക ഡ്യൂട്ടിയ്ക്കായുള്ള ഓഫീസറായി നിയമിച്ചു

സംസ്ഥാനത്തെ വള്ളംകളികളെ കോർത്തിണക്കി തയ്യാറാക്കിയിട്ടുള്ള ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ ആദ്യ മത്സരമാണ് നെഹ്റു ട്രോഫി വള്ളം കളി